തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ

കാണാതായ വ്യോമസേനാ വിമാനത്തിനായുള്ള തെരച്ചിൽ ന് ഊർജിതം

വിപുലമായ സജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആരോഗൃമന്ത്രി കെ

ക്രിക്കറ്റിൽ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീമിന്റെ ആദ്യ മൽസരത്തിൽ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും

സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ തുടർച്ചയായി നിരീക്ഷിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി അമർനാഥ് യാത്രയ്ക്കുശേഷം സംസ്ഥാനത്തെ വിവിധ സാഹചര്യങ്ങളും സ്ഥിതിഗതികളും പരിശോധിച്ചു ശേഷം മാത്രമേ തെരഞ്ഞെടുപ്പിനുള്ള സമയക്രമത്തിൽ അന്തിമതീരുമാനം എടുക്കൂ എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി

കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി രാജീവ് ഗൌബ ആഭ്യന്തര മന്ത്രാലയത്തിൽ കാശ്മീരിന്റെ ചുമതല വഹിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുടെ സന്നിധൃത്തിലായിരുന്നു ചർച്ചു ഈ വർഷത്തെ അമർനാഥ് യാത്രയോടനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് പ്രതിരോധമന്ത്രി ആഭ്യന്തരമന്ത്രിക്ക് വിവരങ്ങൾ നൽകി അടുത്തമാസം ഒന്നാം തീയതിയാണ് അമർനാഥ് യാത്ര ആരംഭിക്കുന്നത്

വിവിധ ഭാഷകളിലെ അമൂല്യ ഗ്രന്ഥങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ശാസ്ത്ര സംബന്ധിയായ അറിവിന്റെ ധനം കണ്ടെത്തുവാൻ ഗവേഷണം നടത്തേണ്ടതുണ്ടെന്ന് മന്ത്രി പറഞ്ഞു രാജ്യത്ത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാനുള്ള പരിശ്രമങ്ങളുടെ അനിവാര്യതയെക്കുറിച്ചു മന്ത്രി പ്രതിബാധിച്ചു യുജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാകുന്നതിന് അനുയോജ്യമായ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ രാജ്യവ്യാപകമായി ആരംഭിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു

കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ

ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ സമഗ്രമായ പരിപാടികൾക്ക് രൂപം നൽകാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി

പ്രകൃതിവിഭവങ്ങളുടെ വിനിയോഗവും സംരക്ഷണവും ഓരോരുത്തരുടെയും കടമയാണെന്ന സന്ദേശം വിളിച്ചോതി ലോകമെമ്പാടും വൈവിദ്ധ്യമാർന്ന പരിപാടികൾ

ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം അന്തരീക്ഷ മലിനീകരണത്തെ ചെറുക്കുക എന്നതാണ് ദിനാചരണത്തിന്റെ ഔദ്യോഗിക ചടങ്ങുകൾ ഇത്തവണ നടക്കുന്നത് ചൈനയിലാണ്

ശ്വാസകോശ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് പ്രധാനകാരണമാണ് അന്തരീക്ഷ മലിനീകരണ്ണം ഇനിയും ഈ ഭൂമുഖത്ത് പിറക്കാനിരിക്കുന്ന് കുഞ്ഞുങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ ഭൂമിയില്ലു വീഭവങ്ങൾ എന്ന ചിന്ത ഓരോ മനുഷ്യരിലും ഉണ്ടാകുന്നതിലൂടെ മാത്രമേ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശ്ര പ്യാപകമാക്കാനാവൂ പരിസ്ഥിതി ദിനത്തോടനുബ്ന്ധിച്ച് വൃക്ഷത്തൈകൾ നടുന്നതിന് ജനകീയ പ്രചാരണ പരിപാടിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ നേതൃത്വം നൽകി സെൽഫി വിത്ത് സാപ്തിങ് എന്ന് പേരിലുള്ള ക്യാമ്പയിനിൽ ചെടികൾ വച്ച് പിടിപ്പിക്കുന്നതിന്റെ സെൽഫി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാനാണ് മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്

കൈയ്യേറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിന് ഗവൺമെന്റ് ശക്തമായ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചു ഭാവിയിൽ നിർമ്മിക്കുന്ന പാതകളിലും നിർമ്മാണം പൂർത്തിയായതും പുരോഗമിക്കുന്നതുമായ ദേശീയ പാതകളിലും നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ട്രൈബ്യൂണൽ ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച് രണ്ട് മാസത്തിനകം സത്യവാങ്മൂലം സമർപ്പിക്കാൻ എൻ

ടി

മഹേന്ദ്രനാഥ് പാണ്ഡേയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രാലയത്തിന്റെ ആദ്യ അവലോകന യോഗത്തിലാണ് തീരുമാനം

സമൂഹത്തിലെ ദുർബലവിഭാഗങ്ങൾക്കായി നൈപുണ്യ വികസന പരിപാടികൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഫീസിളവ് നൽകാൻ ഗവൺമെന്റ് തീരുമാനിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു

എ കസ്റ്റഡിയിൽ വിട്ടു ജമാദ് ഉദ്ധവ തലവൻ ഹഫീസ് സയ്ദിന് സാമ്പത്തിക സഹായം ലഭ്യമാക്കിയ കേസിലാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്

എച്ച് ഹെലികോപ്ടറുകൾ തെരച്ചിലിനായി ഉപയോഗിക്കുന്നുണ്ട്

കര നാവികസേനയും പോലീസും ഐ

ആർ ഒ യും വിമാനത്തിന്റെ തെരച്ചിലിനായി എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ട്

ഡി എസ് സ്റ്റേറ്റ്മെന്റുകൾ ഫയൽ ചെയ്യുന്നതിനുള്ള ഫാറത്തിൽ ചില വൃതിയാനങ്ങൾ വന്നതുമൂലം തൊഴിൽദാതാക്കൾക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടുവെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തീയതി ദീർഘിപ്പിക്കുന്നതെന്ന് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് വൃത്തങ്ങൾ പറഞ്ഞു

ഇന്നലെ പ്പുപ്ത്തിറക്കിയ ബഞ്ച് മാർക്കിംഗ് ഇന്ത്യാസ് പേയ്മെന്റ് സംവിധാനം എന്ന റിപ്പോർട്ടിലാണ് ആർ

മറ്റ് വൻകിട രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പണമിടപാട് സംവിധാനം മെച്ചപ്പെട്ടതാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു

ടി എം മെഷീനുകളുടെ എണ്ണത്തിലും ഡെബിറ്റ് കാർഡുകളുടെ കാര്യത്തിലും പണമിടപാടിനായി വേണ്ടിവരുന്ന ചെലവ് നിയന്ത്രിക്കുന്നതിൽ ഇന്ത്യയ്ക്ക് പ്രമുഖ സ്ഥാനമാണുളളതെന്നും ആർ

ഐ റിപ്പോർട്ടിൽ വിലയിരുത്തുന്നു കടലാസ് രഹിത ഇടപാടുകൾ വ്യാപകമാക്കുന്നതിന് കൂടുതൽ ശ്രമങ്ങൾ അത്യാവശ്യമാണെന്നും ഡിജിറ്റൽ ഇടപാടിന്റെ സ്വീകാര്യത വർദധിക്കാൻ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്

സംസ്ഥാനത്ത് ശിവസേനയെ കൂടാതെ ബിജെപിക്ക് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ രാഷ്ട്രീയ സമാജ് പക്ഷ് റയാത്ത് ക്രാന്തിസേന ശിവസംഗമം തുടങ്ങിയ പാർട്ടികളുടെയും സ്രഖ്യമാണ് നിലവിലുള്ളത്

നിപ്പ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച കോർ ഗ്രൂപ്പിന്റെ ഏകോപന യോഗത്തിനുശേഷം കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി പനി ലക്ഷണങ്ങളോടെ ഇപ്പോൾ അഞ്ച് പേരാണ് ഐസൊലേഷൻ വാർഡിൽ ഉള്ളത് സ്വകാര്യ ആശുപത്രിയിൽ ചികിൽസയിൽ ഉള്ള യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് മന്ത്രി പറഞ്ഞു ഭയപ്പെടേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഈ പ്രതിസന്ധിയെ നേരിടാനാവുമെന്നും മന്ത്രി പറഞ്ഞു

നിപ്പയെ സംബന്ധിച്ച വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ചവർക്കെതിരെ രണ്ടുകേസുകൾ പോലീസിനു കൈമാറിയതായി ജില്ലാകളക്ടർ പറഞ്ഞു

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുർ ഉപരാഷ്ട്രപതി എം

ത്യാഗം സാഹോദര്യം ദ്യ എന്നിവയിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തുന്നതാണ് ഈദ് ഉൽ ഫിത്തറെന്ന് ശ്രീ കോവിന്ദ് സന്ദേശത്തിൽ പറഞ്ഞു ഈ ദിനത്തിൽ നമ്മുടെ സംസ്ക്കാരത്തിന്റെ പ്രത്യേകതകളായ ഈ ശാശ്വത മൂല്യങ്ങൾക്കായി വീണ്ടും ആത്മസമർപ്പണം ചെയ്യണമെന്നും രാഷ്ട്രപതി പറഞ്ഞു പരസ്പരം സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പങ്കുവയ്ക്കലാണ് ഈദ് ഉൽ ഫിത്തറിന്റെ കാതലെന്ന് ഉപരാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു

ഉദ്യോഗസ്ഥരേയും ആറ് ഐ

എസ് ഉദ്യോഗസ്ഥരേയും ഇന്നലെ സ്ഥലം മാറ്റി

ഇന്ന് നടക്കുന്ന മറ്റൊരു മൽസരത്തിൽ ബംഗ്ലാദേശ് ന്യൂസിലന്റിനെ നേരിടും

പ്രസാർഭാരതി സി